കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ സ്വാതന്ത്രൃദിനാഘോഷം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കി മഹാമാരിക്കെതിരായ പോരാട്ടത്തിനുള്ള അംഗീകാരമായി ആരോഗ്യ പ്രവർത്തകരെ പ്രത്യേകം ക്ഷണിക്കാൻ നിർദ്ദേശം

രാജസ്ഥാനിൽ തൽസ്ഥിതി നിലനിർത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഗവർണറെ കണ്ടു

എല്ലാ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്തയച്ചു നിലവിലെ സാഹര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്തണമെന്നാണ് നിർദ്ദേശം ശാരീരിക അകലം പാലിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കണക്കിലെടുത്ത് വലിയ ആൾക്കൂട്ടങ്ങൾ അനുവദിക്കരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു ഈ വർഷം ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഗാർഡ് ഓഫ് ഓണർ ദേശീയ പതാക ഉയർത്തൽ ദേശീയഗാനം ത്രിവർണ്ണ ബലൂണുകൾ എന്നിവ മുൻവർഷ്ട്ടത്തിപ്പോലെ നടക്കുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ഒപ്പിയ്യുന്നു മഹാമാരിക്കെതിരായ പോരാട്ടത്തിനുള്ള അംഗീകാരമായു ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ ശുചിത്വ തൊഴ്ചില്ളികൾ തുടങ്ങിയവരെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് ക്ഷണിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്

കോഴിക്കോട്ട് പ്രസ്തര ഗ്രാമ ഭേദമില്ലാതെ രോഗവ്യാപനമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രചേർന്ന് സർവ്വകക്ഷി യോഗത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി വാർത്ത്യാ സിമ്മേളനത്തിനെത്തിയത്

ഷാൻങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗ രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം വോയിസ് രാജ്യത്തെ കോവിഡ് മുക്തിയിൽ റെക്കോർഡ് വർധനയാണ് രേഖപ്പെടുത്തുന്നത്

രാജ്യത്ത് രോഗ വൃാപനം തുടങ്ങിയതിനുശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗമുക്തിയാണിത്

കോവിഡ്മുക്തി നേടുന്നവരുടെ നിരക്കിൽ ഡൽഹിയാണ് മുൻപിൽ

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങും ഇസ്രയേൽ രാജ്യരക്ഷാ മന്ത്രി ബെന്നി ഗാന്റ്സും ടെലിഫോണിലൂടെ നടത്തിയ സംഭാഷണത്തിൽ നിലവിലെ കോവിഡ് സാഹചര്യത്തിക്കുറിച്ചും വിലയിരുത്തൽ നടന്നു

സമാധാനം സ്ഥാപിക്കുന്നതിന് ചൈനയുള്ട് ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യി പറഞ്ഞു

തന്നെ പിന്തുണയ്ക്കുന്ന എം ൽ എ മാരോടൊപ്പമാണ് അദ്ദേഹം രാജ്ഭവനിൽ എത്തിയത് രാജസ്ഥാൻ നിയമസഭയിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിനു പിന്നാലെയാണ് ഗെഫ്ലോട്ട് ഗവർണറെ കാണാനെത്തിയത്

ആകാശവാണി ദൂരദർശ്ൻ വാർത്തകൾ പ്രധാനമന്ത്രിയുടെ കാര്യാലയം വാർത്താ പിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലിലും പരിപാടി തത്സമയം ലഭ്യമാണ്

ശിവശങ്കറിനെ എൻ ഐ എ തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് സൂചന കൊച്ചി എൻ ഐ

എ ആവശ്യപ്പെട്ട ശിവശങ്കറിന്റെ ഓഫീസിലെ സിസിടിവി ദൃശ്യങ്ങൾ നല്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു

ഇതിനിടെ സ്വപ്നയുടെയും സന്ദീപിന്റെയും അറസ്റ്റ് ഇന്ന് കസ്റ്റംസ് രേഖപ്പെടുത്തി